റോബെർട്ട് വദ്രയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മൂന്ന് ന് പേരുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരച്ചിൽ നടത്തുന്നു

സ്ഥാനത്തിനായി കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ

മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും

തണുപ്പിനെ വകവയ്ക്കാതെ വോട്ടർമാരുടെ നീണ്ടനിര പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായിരുന്നു

ലോറനിൽ നിന്നും പ്പൂർച്ചിലേക്ക് പോയ ബസാണ് അപകടത്തിൽപ്പെട്ടത് ബ്സ് റോഡിൽ നിന്നും തെന്നി കൊക്കയിൽ പതിക്കുക്യ്ായിരുന്നു

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജഗ്പാൽസിംഗ് സന്ധു കഴിഞ്ഞ ദിവസം ഛണ്ഡിഗഡ്ഡിൽ അറിയിച്ചതാണ് ഇക്കാര്യം

ഇവർ പ്രതിരോട്ടു ഇടപാടുകളിൽ കമ്മീഷൻ പറ്റിയെന്നും വിദേശത്ത് ആന്റികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും ആരോപ്പ്ണം ഉയർന്നതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്

ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെയും ബെംഗളുരുവിലെയും വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇതാദ്യമായാണ് പ്രതിരോധ ഇടപാടുകളിൽ കമ്മീഷൻ പറ്റിയതുമായി ബന്ധപ്പെട്ട് വദ്രയുമായി അടുത്ത ബന്ധമുള്ളവർ സംശയത്തിന്റെ നിഴലിൽ വരുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയവൈരാഗ്യം തീർക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു തിരച്ചിലിനെത്തിയ ഉദ്യോഗസ്ഥർ തെരച്ചിൽ വാറണ്ട് കാണിച്ചില്ലെന്ന് ശ്രീ

അടുത്ത മാസ്ം മുതൽ നിലവിൽ വരുന്ന ഈ മാറ്റം ആറ് മാസത്തേയ്ക്ക് തൂട്രും ആഗോള ഇന്ധന വിപണിയുടെ പകുതിയോളം ഒപ്പെക്കും അതിന്റെ സഖ്യ രാജ്യങ്ങളുമാണ് നിയന്ത്രിക്കുന്നത് ആവശ്യത്തിലധികം ഉല്പാദനം നടക്കുന്നതിനാൽ രണ്ട് മാസത്തിനിടെ ആഗോള വിപണിയിൽ മുപ്പത് ശതമാനത്തിലധികമാണ് ഇന്ധനവിലയിൽ കുറവ് ഉണ്ടായത് എന്നാൽ വെനിസ്വലെ ഇറാൻ ലിബിയ എന്നീ രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ഇതിൽ നാല് എണ്ണം മത്സര വിഭാഗത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗ്രി്ട്ടിൽ ബിനുഭാസ്കറിന്റെ കോട്ടയം വിപിൻ രാധാക്യൂഷ്ണന്റെ ആവേമരിയ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുർപ്പു ഇത് ഈ ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനമാണ്

ചലച്ചിത്രമേളയുടെ ഭാഗമായി മൊബൈൽ സെൻസറിംഗിലെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറവും നടക്കും

രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് ഉദ്ഘാടനം നിർവ്വഹിക്കും

ന്റെ ഇൻഫർമേഷൻ ആന്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഐ

വികസ്വര രാജ്യങ്ങളിൽ ആഫ്രിക്കയിലാണ് ൃഷ്ട്രിറ്റ്വും ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളത്

മഞ്ഞ ധരിച്ച പ്രക്ഷോഭകാരികൾ കഴിഞ്ഞ നവംബർ മുതൽ ഇന്ധനവില വർദ്ധനയ്ക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുവരികയാണ് പ്രക്ഷോഭം അക്രമാസക്തമാകാൻ സാദ്ധ്യതയുള്ളതിനാൽ വ്യാപാര സ്ഥാപനങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ ഈഫൽ ടവർ മുതലായവ അടച്ചിട്ടേക്കും

നൂറിലധികംപേർക്ക് പരിക്കേറ്റു

കിഴക്കൻ തീരി നീഗരമായ അങ്കോണയിലെ ഒരു ക്ലബ്ബിൽ സംഗീത പിരിപ്പാടിയ്ക്കായിലായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

മത്സരത്തിൽ വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്തി അതു വഴി കാർട്ടർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടാനാണ് ആതിഥേയർ ശ്രമിക്കുക കഴിഞ്ഞ രണ്ട് കളികളിൽ ഒരു വിജയവും ഒരു സമനിലയുമാണ് ഇന്ത്യയുടെ സമ്പാദ്യം